ഹരിയാന മഹാ രാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പും ഇന്ന് പാക് അധീന കശ്മീരിലെ ഭീകര കൃാമ്പുകൾക്കുനേരെ ഇന്ത്യൻസേന നടത്തിയ പ്രത്യാക്രമണത്തിൽ പത്തോളം ഭീകര പ്രവർത്തകരും പത്തിൽതാഴെ പാക് സൈനികരും മരിച്ചതായി കരസേനമേധാവി പ്രളയനാശം നേരിട്ട നിലമ്പൂരിന് കൂടുതൽ സഹായം ലഭ്യമാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദം ചെലുത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മ ദ്ഖാൻ

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായി തുടരുന്നു ഇന്ന് ആറ് ജില്ല കളിൽ ഓറഞ്ച് അലർട്ട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങൾ അൽപ്പസമയത്തിനകം പോളിങ് ബൂത്തിലേക്ക് മഞ്ചേശ്വരം എറണാകു ളം അരൂർ കോന്നി വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ രാവിലെ ഏഴ് മുതൽ വൈകീട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ്

ഡി എഫ് നിയമസഭാംഗമായിരുന്ന പി

അബ്ദുൾ റസാഖിന്റെ മര ണത്തെത്തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് മറ്റ് നാലിടങ്ങളിൽ എം എൽ എ

അരൂർ ഒഴികെ എല്ലാ മണ്ഡലങ്ങളും യു ഡി എഫിന്റേതായിരുന്നു

ഡി എഫ് എൽ ഡി

ഡി

സ്ഥാനാർഥികളുടെ ശക്തമായ ത്രികോണ മത്സരമാണ് എല്ലാ മണ്ഡലങ്ങളിലും സമാധാനപരമായ വോട്ടെ ടുപ്പിന് എല്ലാ ഒരുക്കവും പൂർത്തിയായിട്ടുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീ സർ ടിക്കാറാംമീണ അറിയിച്ചു

ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും ശക്തമായിപെയ്യുന്ന മഴ വോട്ടെടുപ്പിനെ ബാധിക്കുമോയെന്ന ആശങ്ക യിലാണ് രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും മഞ്ചേശ്വരം ഒഴികെ പ്രദേ ശങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് തിരുവനന്തപുരം എറണാകുളം അടക്കം ജില്ല കളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയാ ണ് പാക് അധീന കശ്മീരിൽ ഭീകർക്യാമ്പുകൾക്കുനേരെ ഇന്ത്യൻസേന നടത്തിയ പ്രത്യാക്രമുണത്തിൽ പത്തോളം ഭീക രപ്രവർത്ത കരും പത്തിൽതാഴെ പാകിസ്താൻ സൈനികരും മരിച്ചതായി കരസേനമേധാവി ജനറൽ ബിപിൻ റാവത്ത് ന്യൂഡൽഹിയിൽ വെളിപ്പെടുത്തി മൂന്ന് ഭീകര ക്യാമ്പുകൾ സൈന്യം പൂർണമായി തകർത്തു

ജമ്മുകൾമീരിലെ താങ്ധർ സെക്ടറിൽ വെടിനിർത്തൽലംഘിച്ച പാകിസ്താൻ നടപടിക്കെതിരേയായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി പാകി സ്താന്റെ ഭാഗത്തുനിന്ന് ഇനിയും വെടിനിർത്തൽ ലംഘനമുണ്ടായാൽ ഇന്ത്യൻസേന ശക്തമായി തിരിച്ചടിക്കുമെന്നും കരസേന മേധാവി വൃക്ത മാക്കി പ്രളയനാശം നേരിട്ട നിലമ്പൂരിന് കൂടുതൽ സഹായം ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദം ചെലുത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചു ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ സന്ദർശിച്ചശേഷം ഇന്നലെ മാധൃമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന പോത്ത്കല്ല് സിറ്റി ടവറും ഗവർണറും ഭാര്യയും സന്ദർശിച്ചു

സ്കൂളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ ഉദ്ഘാടനം ചെയ്തു പ്രകൃതിദുരന്തങ്ങളും അപകടങ്ങളും വർധിക്കുന്ന സാഹചര്യത്തിൽ ട്രോമകെയർ സംവിധാനം സംസ്ഥാനത്ത് അത്യാവശ്യമാണെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു ഇതിന്റെ പ്രവർത്തനം സംസ്ഥാനവ്യാപകമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തറക്ക ല്ലിടും തുടർന്ന് എലവഞ്ചേരിയിൽ വി

കൃഷ്ണനെഴുത്തച്ഛൻ ലോ കോളേജിന്റെ പുതിയ കെട്ടിടവും വൈകിട്ട് കണ്ണമ്പ്രയിൽ സാംസ്കാ രിക വകുപ്പിന്റെ എം

രാമനാഥൻ സാംസ്കാരികനിലയവും അദ്ദേഹം നാടിന് സമർപ്പിക്കും ഷൊർണൂരിൽ ബാലൻ കെ നായർ സ്മാരക നാട കോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നാടിന്റെ വികസനത്തിൽ തദ്ദേശ് സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കു ണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പദ്ധതി നിർവഹണ ത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനകം രാജ്യശ്രദ്ധ നേടി ക്കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കണ്ണൂർ ചെങ്ങളായി ഗ്രാമപ ഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് അൻപതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്ത നങ്ങൾ നടപ്പാക്കിവരികയാണെന്ന് മന്ത്രി ഡോ

മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകണം കണ്ണൂർ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിന്റെ സമഗ്ര വികസന പരിപാടി സമൃദ്ധിയുടെ അവലോകനവും ശിൽപ്പശാലയും ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി

ശൈലജ ഉദ്ഘാടനം ചെയ്യും

ആദ്യഘട്ടം നേരത്തെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തിരുന്നു കൊച്ചിയിൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സര ത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്ത എ

യെ പരാജയപ്പെടുത്തി ഒന്നിനെതിരേ രണ്ട് ഗോളിനാണ് ആതിഥേയരുടെ വിജയം രണ്ട് ഗോളും പിറന്നത് ഇന്ത്യൻ കൃാപ്റ്റൻ ബെൽത്തലോമേവ് ഒഗുബെച്ചെയുടെ ബൂട്ടിൽനിന്നാണ് ആറാം മിനിറ്റിൽ ഗോൾ വഴങ്ങിയശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോൾ തിരിച്ചടിച്ചത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബാൾ ചാംപ്യൻഷിപ്പ് നാളെ കാലിക്കറ്റ് സർവകലാശാല കൃാംപ്സിൽ ആരംഭിക്കും

നാളെ ആദ്യ മത്സരത്തിൽ എം ഇ

വൈസ് ചാൻസലർ ഡോ

മുഹമ്മദ് ബഷീർ രാവിലെ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായി തുടരുന്നു അടുത്ത അഞ്ച് ദിവസം കൂടി ഇടിയോട് കൂടിയ കനത്തമഴക്ക് സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതിശക്തമായ മഴ സാധ്യത മുൻനിർത്തി ഇന്ന് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ എറ ണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴി ക്കോട് കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്

മീൻപിടു ത്തക്കാർ കടലിൽ പോകരുത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി നൽകി തിരുവനന്തപുരത്ത് പ്രൊഫഷണൽ കോളജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും കളക്ടർ അവധിനൽകി

എസ് ഇ

ഇ

സി എസ് ഇ സ്കൂളുകൾക്കും കേന്ദ്രീയ വിദ്യാ ലയങ്ങൾക്കും അങ്കൻവാടികൾക്കും അവധി ബാധകമാണ് എന്നാൽ കോളേ ജുകൾക്ക് അവധിയില്ല തൃശൂർ ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം അങ്കൻവാടി കളടക്കം വിദ്യാലയങ്ങൾക്ക് അവധിയായിരിക്കും കോളേജുകൾക്ക് അവധി ബാധകമല്ല കൊട്ടാരക്കര താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയി ട്ടുണ്ട്

പുനലൂർ കൊട്ടാരക്കര ടൌണുകളിൽ വെള്ള ക്കെട്ടുമൂലം അൽപ്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു

സി റ്റോഡിലും ചില യിടങ്ങളിൽ വെള്ളം കയറി ആലപ്പു ഴയിലും ശക്തമായ മഴ പെയ്യുകയാണ്

പലയിടങ്ങളിലും മരംവീണ് വൈദ്യുതിവിതരണം തടസ്സപ്പെട്ടു കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ മുഖ്യപ്രതി ജോളിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചോദ്യം ചെയ്യാനാണ് ജോളിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അപേക്ഷ പരിഗണിക്കും കേസിൽ പ്രോഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിപ്പിക്കാനും അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും

ബന്ദിപ്പൂർ വനമേഖലയിലെ രാത്രിയാത്രാ നിരോധനത്തിൽ കേന്ദ്രനില പാട് പ്രധാനമാണെന്ന് എം

രാഘവൻ എം

കൊല്ലങ്കോട് ബ്ലോക്ക് തൃത്താലബ്ലോക്ക് എന്നിവർക്കാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കോട്ടയം കായംകുളം പാതയിലെ ചിങ്ങവനം ഏറ്റുമാനൂർ ഭാഗത്ത് പാത ഇരട്ടിപ്പിക്കൽജോലി ജനുവരിയിൽ തുടങ്ങുമെന്ന് റയിൽവേ അറിയിച്ചു

കണ്ണൂർ കൂട്ടുപുഴ വളവുപാറയിൽ നിർത്തിയിട്ട മിനി ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് രണ്ടു പേർ മരിച്ചു ചരൾ സ്വദേശിയായ സാജൻ കച്ചേരിക്കടവ് സ്വദേശിയായ ബൈജു എന്നിവരാണ് മരിച്ചത് ് മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പെരിയാർ കടുവാസങ്കേതത്തിലെ ദിവസവേതന ജീവനക്കാരുടെ പുതുക്കിയ ശമ്പളം അടിയന്തരമായി നൽകണമെന്ന് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു